അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്

നിലപാടുകളായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി

എസ് ആർ ടി

പാലാരിവട്ടം മേൽപ്പാല അഴിമതിക്കേസിൽ ടി

അടക്കമുള്ള മൂന്നു പ്രതികൾക്ക് ഹൈക്കോടതി ജാമൃം അനുവദിച്ചു

നിരത്തിലിറങ്ങി

മുന്നിൽ

എ ദുരുപയോഗം ചെയ്യുന്നതിനെ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പന്തീരാങ്കാവിൽ രണ്ടു യുവാക്കൾക്ക് നേരെ യു എ

എ പ്രകാരം കേസെടുത്ത വിഷയം ഗവൺമെന്റ് ഗൌരവപരമായി പരിശോധിക്കുമെന്നും ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് വ്യക്തമായ നിലപാടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി

ഐ എം പ്രവർത്തകർക്കു നേരെ യു എ

എ ചുമത്തിയ പോലീസ് നടപടി രാഷ്ട്രീയ വിരോധം തിർക്കാനായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയും പ്രയോഗിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നതായി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം

അട്ടപ്പാടിയിൽ തണ്ടർബോൾട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മണിവാസകത്ത് കസ്റ്റഡിയിലെടുത്ത ശേഷം വെടിവച്ചു കൊല്ലുകയായിരുന്നു എന്നും പ്രതിപക്ഷം ആരോപിച്ചു

ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ ആറ് യു എ

എ കേസുകൾ റദ്ദാക്കിയതായും എട്ട് കേസുകൾക്ക് പ്രൊസിക്യൂഷൻ അനുമതി നിഷേധിച്ചതായും മുഖ്യമന്ത്രി മറുപടിയിൽ പറഞ്ഞു

എ

എ തെറ്റായി പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

എ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് കോൺഗ്രസ്സിന്റെ നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു ഏഴുപേരെ വെടിവച്ചു കൊന്ന പോലീസ് നടപടി കേരള ചരിത്രത്തിലെ കറുത്ത അദ്ധ്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു വസ്തുതകൾ പുറത്തുകൊണ്ടു വരാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ടു വച്ചു

നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

എ

എ വകുപ്പ് ചുമത്തി അറസ്റ്റിലായ രണ്ടുപേരുടെ ജാമ്യാപേക്ഷ കോടതി മറ്റന്നാൾ പരിഗണിക്കും ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേട്ട കോടതി പ്രോസിക്യൂഷന് നിലപാട് ബോധിപ്പിക്കാൻ സമയം അനുവദിക്കുകയായിരുന്നു

എസ് ആർ ടി

എന്നാൽ ജോലിക്ക് ഹാജരാകാത്തവർക്കു ഡയസ്നോൺ ബാധകമായിരിക്കുമെന്നു കെ

ആർ ടി സി മാനേജ്മെന്റ് വൃക്തമാക്കി മെഡിക്കൽ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലില്ലാതെ അവധി അനുവദിക്കില്ലെന്നും മാനേജ്മെന്റ് വൃക്തമാക്കി

ബി

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഏകദിന ഉപവാസ സമരം കോട്ടമൈതാനത്ത് തുടങ്ങി

കോഴിക്കോട്ട് നടന്ന അന്താരാഷ്ട്ര നാളികേര കോൺഫറൻസിന്റെ സമാപനസമ്മേളനത്തിൽ സംസാരിക്കുക്യായിരുന്നു അദ്ദേഹം നാളികേരാടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി കിൻഫ്ര വഴിയാണ് സംസ്ഥാന ഗുവ്ൺമെന്റ് കോക്കനട്ട് പാർക്കുകൾ സ്ഥാപിക്കുന്നത്

സൂരജ് അടക്കമുള്ള മൂന്നു പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു

എസ് പ്രോജക്ട് കമ്പനിയുടെ എം

സുമിത്ത് ഗോയൽ ആർ ബി

സി മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി

തങ്കച്ചൻ എന്നിവരാണ് ജാമ്യം ലഭിച്ച മറ്റ് രണ്ട് പേർ

തുടർന്ന് എം

എ മാർ എം

വ്യവസായ വകുപ്പിന്റ് കീഴിലുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ക്ടേരളാ ഓട്ടോ മൊബൈൽസ് ലിമിറ്റഡാണ് ഇ ഓട്ടോ നിർമിച്ചത്

ഷാജഹാൻ ആകാശവാണിയോട്

മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു